പ്രചാരണം അന്തിമഘട്ടത്തിൽ

കൈക്കൂലി നൽകാൻ ശ്രമിച്ചെന്ന കേസിൽ അണ്ണാ ഡി

വി ദിനകരനെതിരെ ഡൽഹി കോടതി കുറ്റം ചുമത്തി

പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജയ്പൂർ ഹനുമൻഗഡ് സിക്കാ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ ഇന്ന് അഭിസംബ്ലോൾന്റ ചെയ്യും

ജെ പി അദ്ധ്യക്ഷൻ അമിത് ഷാ മുതിർന്ന പാർട്ടി നേതാക്കളായ രാജ്നാഥ്സിംഗ് നിഥിന്റ് ഗൃഡ്കരി സ്മൃതി ഇറാനി രാജ്യവർദ്ധൻ റാത്തോർ യോഗി അദിത്യനാഥ് മുഖ്യമന്ത്രി വസുന്ധരാരാജെ തുടങ്ങിയവർ സംസ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു സച്ചിൻ പൈലറ്റ് അഹമ്മദ് പട്ടേൽ ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരാണ് കോൺഗ്രസിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഗഡ്വാളിലും തണ്ടൂരിലും വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു വെള്ളിയാഴ്ചയാണ് ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്ന് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന റ്റി

നേതാവ് കെ ചന്ദ്രശേഖര റാവുവിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയ കേസിലാണ് നടപടി

ഉത്രത്തെടുപ്പ് കമ്മീഷനു നൽകിയ പരാതിയിൽ ഇന്ത്യൻ ശ്രീക്ഷാ് നിമയത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്റ്റ്ടുത്ത്

നാളെയാണ് വോട്ടെടുപ്പ്

സ്യാന മേഖലയിൽ ഇന്നലെയ്യുണ്ടായ ആക്രമണത്തിൽ ഒരു പോലീസുകാരനും ഗ്രാമ്പീണ്സൂം കൊല്ലപ്പെട്ടിരുന്നു

ഐ

സ്യാനയിൽ സ്ഥിതിഗ്രികൾ നിയന്ത്രണവിധേയമാണെന്ന് പോലീസ് അറിയിച്ചു

ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കാലാവസ്ഥ വൃതിയാനത്തെ തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മതങ്ങൾക്ക് പങ്ക് വഹിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

എൻ സെക്രട്ടറി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാരീസ് ഉടമ്പടിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെ അന്റോണിയോ ഗുട്ടറസ് പ്രശംസിച്ചു

അതിവേഗത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചു മുഴുവൻ രാഷ്ട്രങ്ങളും വിശ്വസിക്കുന്നത് ഇന്ത്യ വൈകാതെ ഈ മൂന്നു ലോക രാജ്യങ്ങളിൽ ഒന്നിന് പകരമാവുമെന്നാണ്

ദിനകരനെതിരെ ഡൽഹി പ്രത്യേക കോടതി ക്രിമിനൽ ഗൂഢാലോചനകുറ്റും ചുമത്തി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം പാർട്ടിക്ക് രണ്ടില ചിഹ്നം അനുവദിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചുവെന്നാണ് ദിനകരനെതിരായ ആരോപണം

ഇന്ന് കോടതിയിൽ ഹാജരായ ദിനകരൻ കുറ്റം നിഷേധിച്ചിരുന്നു

യിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് ദിനകരൻ പുതിയ പാർട്ടി രൂപീകരിച്ചത്

എല്ലാ നാവികസേനാ അംഗങ്ങൾക്കും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു കൂടുതൽ വിവരങ്ങളുമായി സോഫിയ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തി സംരക്ഷിക്കുന്നതിൽ നാവിക സേനയുടെ പ്രതിബദ്ധതയിൽ അഭിമാനം കൊള്ളുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു ദുരന്ത നിവാരണത്തിൽ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാവികസേന ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ കര നാവിക വ്യോമ സേനാ മേധാവികൾ പുഷ്പചക്രം അർപ്പിച്ചു ഏത് സുരക്ഷാ വെല്ലുവിളിയും നേരിടാൻ നാവികസേന സജ്ജമാണെന്ന് നാവികസേന മേധാവി അഡ്മിറൽ സുനിൽ ലാംബ ആകാശവാണിയോട് പറഞ്ഞു

ബി ഐ

മന്ത്രി ഒന്നരക്കോടിയോളം രൂപയുടെ അവിഹിത സമ്പാദ്യമുണ്ടാക്കിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സ്വത്തു സമ്പാദനവുമായി ബന്ധപ്പെട്ട ഏതാനും രേഖകളും സി ബി ഐ

സത്യേന്ദ്ര ജെയിനിനെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ഏതാനും ദിവസം മുമ്പാണ് അനുമതി നൽകിയത്

ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തത്

പെന്റഗണിൽ യു

പ്രതിരോധ സെക്രട്ടറി ജയിംസ് മാറ്റിസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് പ്രതിരോധമന്ത്രിയുടെ പ്രതികരണം പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസം നാൾക്കുനാൾ വർദ്ധിച്ച് വരികയാണ്

എസ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉഭയകക്ഷി ചർച്ച സഹായമാകുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രതിരോധി മന്ത്രി യു എസിലെത്തിയത്

വിഷയത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടിസിന് മറുപടി നൽകവെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സഭ നിർത്തിവെച്ച് ചർച്ച നടത്തേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങി പോകുകയായിരുന്നു

ഫിഫയുടെ ലോക ഫുട്ബോൾ പുരസ്കാരത്തിനു പിന്നാലെയാണ് ലൂക്ക മോഡ്രിച്ചിന് ബലന്ദോർ പുരസ്കാരം ലഭിക്കുന്നത് ഫ്രഞ്ച് ഫുട്ബോൾ വാരികയായ പ്രിഫാൻസ് ഫുട്ബോൾ നൽകുന്നതാണ് സർണ്ണപ്പന്ത് എന്ന് അർത്ഥം വരുന്ന ബലന്ദോർ

മികച്ചു യുവകളിക്കാരൻ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെയാണ് നോർവെ താരം അഡ് ഹെഗ് ബർഗി നാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം

ഇന്നലെ രണ്ടാം ഗ്രൂപ്പ് എ മത്സരത്തിൽ അർജന്റീന ന്യൂസിലാൻഡിനെ മറുപടിയില്ലാത്ത മൂന്നു ഗോളിനു തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ സ്പെയിനും ഫ്രാൻസും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചു

നാല് ദിവസത്തെ സമ്മേളനത്തിൽ കരടികളുടെ സംരക്ഷണം വന്യജീവി സങ്കേതങ്ങളിൽ മൃഗങ്ങളെ പാർപ്പിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ കൈമാറും